ആയി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹബ്ബ് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

കേന്ദ്രമന്ത്രി അമിത്ഷാ

സംവിധാനമൊരുക്കി കേന്ദ്രസർക്കാർ

പ്രശസ്ത കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി അന്തരിച്ചു

ആദരാഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക ലോകം

തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിരവധി പദ്ധതികളുട്ടു ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വേദിയിൽ മുൻമുഖ്യമന്ത്രി എം

പുതുച്ചേരിയിലെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ആരോഗ്യമുണ്ടെങ്കിലേ സമൃദ്ധി ഉണ്ടാകൂ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി സൌഖ്യവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി രാജ്യമെമ്പാടുമുള്ള കർഷകർ നൂതന മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പുതിയ വിപണി തുറന്നുകൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ് മികച്ച ഗതാഗത മാർഗ്ഗങ്ങൾ അതിന് ഊർജ്ജമേകുമെന്നും ശ്രീ മോദി പറഞ്ഞു

തിരുവനന്തപുരത്ത് പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കേരളത്തിന്റെ ബൌദ്ധിക മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന ബഹുമുഖ വ്യക്തിത്വമായിരുന്നു ശ്രീ പി

സാംസ്കാരിക നവോത്ഥാനവും ആത്മീയ പുനുരുജ്ജീവനവും കൊണ്ടു വന്ന മഹാൻമാരാൽ സമ്പന്നമാണ് കേരളം

ഇന്ത്യയുടെ ബൌദ്ദ്ചിക പാരമ്പരൃത്തിന് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ട്ടെന്നും ഇത് രാജൃത്തിന്റെ അടിസ്ഥാന ഐകൃത്തെ നിലനിർത്താൻ ് സഹായിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും പ്രമ്പരാഗത ആഹാര രീതിയിലേക്ക് മടങ്ങി പോകണമെന്നും ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്നും ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഒ രാജഗോപാൽ എം

തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

തൊഴിൽ ആരോഗൃം വിദ്യാഭ്യാസം വീട് വൈദ്യുതി എന്നിവ ജനങ്ങൾക്കു ലഭ്യമാകണമെങ്കിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

വരും നാളുകളിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ നല്ലൊരു ശതമാനം വഹിക്കുന്നത് അസമും വടക്കുകിഴക്കൻ മേഖലയുമായിരിക്കും വെളളപ്പൊക്കം അക്രമം നുഴഞ്ഞുകയറ്റം എന്നിവയിൽ നിന്ന് അസമിനെ മുക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

പരാതികൾ പരിഹരിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങൾ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

രാജ്യത്തിന്റെ അഖ്ണ്ഢത്യും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായാണ് നിർദ്ദേൾങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ജഡ്ജിയോ യോഗൃതയുളള വിദഗ്ധനായ ഒരാളോ തലപ്പത്തുള്ള സ്വയം നിയന്ത്രണ സംവിധാനം ഒറ്റിറ്റി പ്ലാറ്റ്ഫോമുകൾക്ക് വേണമെന്നും ശ്രീ ജാവദേക്കർ വൃക്തമാക്കി

സാമൂഹിക ക്ഷേമത്തിനും യുവാക്കളുടെ ശാക്തീകരണത്തിനും മന്നത്ത് പദ്മനാഭൻ നൽകിയ സംഭാവനകൾ വലുതാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

കേരളത്തിനു പുറമെ മഹാരാഷ്ട്രു കർണാടകം തമിഴ്നാട് പശ്ചിമബംഗാൾ ഛത്തീസ്ഗഢ് പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് കേന്ദ്രഭരണപ്രദേശമായ ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലേക്കാണ് വിദഗ്ധ സംഘത്തെ നിയ്യോഗിച്ചത്

കേരളം മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് തമിഴ്നിട്ടിൽ ഏഴ് ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബസ്സിമാക്കി

ആർ ടെസ്റ്റ്ക്ന്ഗറ്റീവ് ഫലം നിർബന്ധമാണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മേള ഉദ്ഘാടനം ചെയ്യും സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് തദ്ദേശീയ കളിപ്പാട്ട പ്രദർശനം

അസുഖബാധിതനായി ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി